ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം ഇന്ന് ചെന്നൈയിൽ

അപൂർവം ചില പോളിംഗ് ബൂ ത്തുകളിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിന് ഉണ്ടായ തകരാറി നെ തുടർന്ന് പോളിംഗ് വൈകിയതൊഴിച്ചാൽ വോട്ടിംഗ് പൊതുവെ സുഗമമായാണ് നടക്കുന്നത് ഈ ബൂത്തുകളിൽ തകറാറ് പരിഹരിച്ച വോട്ടിംഗ് പുനരാരംഭിച്ചിട്ടുണ്ട് കനത്ത സുരക്ഷയുടെ നടുവിൽ ത്രിപുരയിൽ വോട്ടിംഗ് സമാധാനപരമായി പുരോഗമിക്കുകയാണ്

ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്നതിനാൽ സേന അതീവ ജാഗ്രതയിലാണ്

ന്യൂസ് ഡസ്ക് ആകാശവാണി

രാവിലെ ആറ് മണിക്ക് തുടങ്ങിയ മോക്ക് പോളിംഗ് പലയിടത്തും വോട്ടിംഗ് യന്ത്രങ്ങളുടെയും വിവിപാറ്റുകളുടെയും തകരാറിനെത്തുടർന്ന് മുടങ്ങി വോട്ടിങിനിടെ പരാതി ഉയർന്ന സ്ഥലങ്ങളിൽ ഒരു മണിക്കൂർ വോട്ടിങ് നീട്ടണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യതെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ചെന്നിത്തല കത്തയച്ചു ഇതിനിടെ പോളിംഗ് പുരോഗമിക്കുന്നതിനിടെ മൂന്നിടത്തായി മൂന്ന് പേർ കുഴഞ്ഞ് വീണ് മരിച്ചു

പ്രധാനമന്ത്രി ഗുജറാത്തിലെ നിശാൻ അഹമ്മദാബാദിൽ വിദ്യാലയത്തിലും ശ്രീ അമിത് ഷാ അഹമ്മദ്രാബ്രാദിലെ നരൻപുരയിലുമാണ് വോട്ട് രേഖപ്പെടുത്തിയത് തുറ്റുന്ന് ജീപ്പിൽ പാതയോരത്ത് തിങ്ങിനിറഞ്ഞവരെ അഭിവാദ്യം ചെയ്താണ് പ്രധാനമന്ത്രി വോട്ട് ചെയ്യാനായി പോളിംഗ്ബൂത്തിലെത്തിയത് പോളിംഗ്ബൂത്തിൽ കാത്തുനിന്നിരുന്ന ബി ജെ പി അധ്യക്ഷൻ അമിത് ഷാ പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്തു

അഹമ്മദാബാദിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തീവ്രവാദികൾക്ക് തോക്കും സ്ഫോടകവസ്തുക്കളുമാണ് ആയുധമെങ്കിൽ ജനാധിപത്യത്തിന്റെ ശക്തിയേറിയ ആയുധമാണ് സമ്മതിദാനാവകാശം രാജ്യത്തെ എല്ലാ ജനങ്ങളും അവരുടെ വോട്ടവകാശം വിനിയോഗിക്കണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു

ഏറ്റവും കൂടുതൽ വോട്ടർമാർ മലപ്പുറത്തും കുറവ് വ്യന്റാട്ടിലുമാണ്

കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം ശശി തരൂർ കുമ്മനം രാജശേഖരൻ സു രേഷ്ഗോപി കെ

ജെ

ആസാമിലെ നാലു ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും പോളിംഗ് നടക്കുകയാണ്

ഏഴ് ഘട്ടങ്ങളിലായി ന ടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് വോട്ടെടുപ്പ് നടക്കുന്നത് ഇന്നാണ്

കേരളത്തിനുപുറമെ ഗുജറാത്തിലും ഗോവയിലും മുഴുവൻ ലോക്സഭാ സീറ്റുകളിലേയ്ക്കും ഇന്നാണ് വോ ട്ടെടുപ്പ്

ജമ്മുകശ്മീരിലെ അനന്ത്നാഗ് മണ്ഡലത്തിൽ മൂന്നു ഘട്ടമായി നടക്കുന്ന വോട്ടെടുപ്പിന്റെ ആദ്യൂഷ്ടട്ടവും ഇന്നാണ്

ചില പോളിം ഗ് ബൂത്തുകളിൽ വെബ്കാസ്റ്റിൽ പ്രീഡിയോ റെക്കോഡിംഗ് സൌകര്യ ഏർപ്പെടുത്തിയിട്ടുണ്ട് ങ്ങൾ വനിതാ പോളിംഗ് സ്റ്റേഷനുകളും ജട് മോഡൽ പോളിംഗ് സ്റ്റേഷനുകളുമാണ് സജീകരിച്ചിട്ടുള്ളത്

രാജ്യത്തുടനീളം നടക്കുന്ന പ്രചാരണ പരിപാടികളിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ മുതിർന്ന നേതാക്കൾ പങ്കെടുക്കും ഇന്ന് ഒഡീഷയിലും പശ്ചിമ ബംഗാളിലുമായി നടക്കുന്ന മൂന്നു റാലികളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും ഒഡീഷയിൽ കേന്ദ്രപാറാ ബാലാസോർ എന്നിവിടങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം ശ്രീ മോദി പൊതു യോഗങ്ങളെ അഭിസംബോധന ചെയ്യും പശ്ചിമ ബംഗാളിലെ അസൻസോളിൽ വൈകുന്നേരം നടക്കുന്ന തിരഞ്ഞെടുപ്പ് പൊതുയോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി ഇന്ന് രാജസ്ഥാനിലും മധ്യപ്രദേശിലും തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളെ അഭിസംബോധന ചെയ്യും

പി സ്ഥാനാർത്ഥിയായി ഈസ്റ്റ് ഡൽഹിയിൽ നിന്ന് മത്സരിക്കും മീനാക്ഷി ലേഖി ന്യൂഡൽഹിയിൽ നിന്ന് വീണ്ടും സ്ഥാനാർത്ഥിയാകും കോൺഗ്രസിന്റെ അരവിന്ദർ സിങ് ലൌലിയും ആം ആദ്മി പാർട്ടിയുടെ അദീഷിയുമാണ് ഗംഭീറിന്റെ എതിരാളികൾ ആം ആദ്മി പാർട്ടിയുടെ ബ്രജേഷ് ഗോയലും കോൺഗ്രസിന്റെ അജയ് മാക്കനുമായാണ് മീനാക്ഷി ലേഖിയുടെ പോരാട്ടം നോർത്ത് വെസ്റ്റ് ഡൽഹിയിലെ സ്ഥാനാർത്ഥിയെ ബി ജെ

അവശേഷിക്കുന്ന ഡൽഹിയിലെ ആറു സീറ്റുകളിലേയ്ക്കുമുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്

ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ശ്രീലങ്കയിൽ കഴിഞ്ഞ അർദ്ധരാത്രി മുതൽ ഗവൺമെന്റ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു പൊതുസുരക്ഷ ഉറപ്പാക്കുന്നതിനായി നടന്ന ദേശീയ സുരക്ഷാ കൌൺസിൽ യോഗത്തിലാണ് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്താൻ തീരുമാനമായത് ദുഃഖാചരണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്

ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ രാത്രി എട്ടിന്റാണ് മത്സരം നേരത്തെ നടന്ന മത്സരത്തിൽ ചന്നൈ ആറ് വിക്കറ്റിന് ഹൈദരാബാദിനോട് പരാജയപ്പെട്ടിരുന്നു